മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും

രാജ്യത്തെ ആദ്യ കോർപ്പറ്റേറ്റ് ട്രെയിൻ ലക്നൌ ഡൽഹി തേജസ് എക്സ്പ്രസ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു

ഓരോരുത്തരെ ആയി മോചിപ്പിക്കാൻ തീരുമാനം

നാളെയാണ് സൂക്ഷ്മപരിശോധന

കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ശിവ്സേനാ യുവജന നേതാവ് ആദിത്യ താക്കറെ ബി ജെ

യുടെ ചന്ദ്രകാന്ത് ദാദാ പാടീൽ എൻസിപി യുടെ ധനഞ്ജയ് മുണ്ടെ ജിതേന്ദ്ര അവ്ഹദ് എന്നീ പ്രമുഖ നേതാക്കൾ ഉൾപ്പെട്ടെയുള്ളവർ മഹാരാഷ്ട്രയിൽ ഇന്നലെ നിമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു

ജെ

മന്ത്രിമാരായ പങ്കജ മുണ്ടെ ഗിരീഷ് മഹാജൻ സ്റ്റർർഷ് ഖാഡെ സുഭാഷ് ദേശ്മുഖ് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി പൃഥ്വി രാജ് ചവാൻ എന്നിവരും പത്രിക സമർപ്പിച്ചു

ഹരിയാന മുഖ്യമന്ത്രി മന്ോഹർലാൽ ഖട്ടർ മുൻ മുഖ്യമന്ത്രി ഭൂപേന്തർ സിംഗ് ഹൂഡ കോൺഗ്രസ് ദേശീയ വക്താവ് റൺദീപ് സിംഗ് സൂർജേവാല മുതിർന്ന ബി ജെ

നേതാവ് രാം ബിലാസ് ശർമ്മ ബി ജെ

യുടെ സംസ്ഥാന അധ്യക്ഷൻ സുഭാഷ് ബരാല ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ലെ അഭയ് സിംഗ് ചൌട്ടാല ജൻനായക്ക് ജനതാ പാർട്ടിയിൽ നിന്നുള്ള ദുഷ്യന്ത് ചൌട്ടാല എന്നിവർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ലക്നൌ ഡൽഹി റൂട്ടിലായിരിക്കും തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുക യാത്രികർക്ക് വേഗതയേറിയതും സുഖകരവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന തേജസ് ട്രെയിൻ ആഴ്ചയിൽ ആറ് ദിവസം സർവ്വീസ് നടത്തും

താമസിയാതെ തന്നെ ട്രെയിനിൽ എ ടി എം സേവനവും ലഭൃമാക്കുമെന്ന് ഐ ആർ

അടുത്ത വർഷം ജമ്മു കാശ്മീരിൽ നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും യോഗം അറിയിച്ചു പാർപ്പിടം ഗതാഗതം എന്നീ വികസന പദ്ധതികളിലൂടെ തൊഴിലവസരങ്ങളൊരുക്കുകയും നിക്ഷേപത്തിനു വഴിയൊരുക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും യോഗം അറിയിച്ചു

രഹസ്യവിവരത്തെ തുടർന്ന് കരസേനാ വിഭാഗവും പൊലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഭീകരരുടെ ഒളിസങ്കേതത്തിൽ നിന്ന് ഗ്രനൈഡുകൾ കണ്ടെടുത്തത്

വയ്യനാട്ടിലെ യാത്രാ നിരോധന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് ശ്രീ

വനപാതയിലൂടെയുള്ള ഗതാഗതം ഇന്തൃയിലെ പല ഭാഗത്തുമുണ്ട് അത് വയനാട്ടിൽ മാത്രമായി തടയാൻ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നീതി ഉറപ്പാക്കാൻ രാജ്യത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരുടെ സേവനം ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് നഗരസഭയും ഗവൺമെന്റും നൽകിയ സമയപരിധി അവസാനിച്ചത് സ്വയം ഒഴിയുന്നതായി അറിയിച്ചവർക്ക് സാധനങ്ങളും വീട്ടുപകരണങ്ങളും കൊണ്ടുപോകാൻ സമയം അനുവദിച്ചിട്ടുണ്ട്

ഉപസമിതി ചെയർമാൻ ശ്രരവണകുമാറിനു പുറമെ കേരള പ്രതിനിധികളായ അരുൺ ജേക്ടബ്ബ് എൻ

ഇന്നലെ ദുബായിലെത്തി വിവിധ വിഭാഗത്തിലുള്ള വ്യവസായ പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും

രമണ സഞ്ജീവ് ഖന്ന എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേന്ദ്രത്തിന് നോട്ടീസ് നല്കിയത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ബെഞ്ചുകൾ പ്രവർത്തനസജ്ജമാകും വരെ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ കേൾക്കണമെന്നും സുപ്രീംകോടതി എല്ലാ ഹൈക്കോടതികൾക്കും നിർദേശം നല്കി

ഒൻപത് നഗരങ്ങളിൽ പ്താസ്റ്റിക് ഉപയോഗിച്ചുളള റോഡ് നവീകരണമാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ്മൌര്യ ഗാന്ധിജയന്തി ദിനത്തിൽ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചു സംസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ തുടർന്നും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ജമ്മുവിലും കാശ്മീരിലും ഓരോ കേന്ദ്രം വീതം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗവർണറുടെ ഉപദേശകൻ ശ്രീനഗറിൽ പറഞ്ഞു പുഷ്പകർഷകർക്ക് പരിശീലനം നൽകുന്നതിനും നൈപുണ്യ വികസനത്തിനുമായി സംസ്ഥാനത്തെ രണ്ട് കാർഷിക സർവകലാശാലകൾക്ക് ഗവൺമെന്റ് അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

വൃക്തിഗത കേസുകൾ വിശകലനം ചെയ്യുന്ന മുറയ്ക്ക് ഓരോരുത്തരെയായി മോചിപ്പിക്കാനാണ് തീരുമാനം

ഡൽഹിയിൽ ഇന്ത്യൻ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും ഇന്ധന ഇറക്കുമതിയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്

ആഗോളതലത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്ഥിരമായ ലഭ്യതക്കുറവും എണ്ണ ഉപഭോക്തൃ രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയില്ലാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി ജി

വിവിധ പ്രളയബാധിത ജില്ലകൾ സന്ദർശിക്കുന്ന സംഘം ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കും ബീഹാർ ഗവൺമെന്റ് പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തും

ന്യൂഡൽഹിയിൽ നിന്നും ലോഹിയാൻ ഖാസ് വരെ പോകുന്ന ട്രെയിൻ സൂൽത്താൻപൂർ ലോധിയിലൂടെയാണ് കടന്നു പോവുക ശ്രീമതി ഹർസിമ്രത് കൌർ ബാദലിന്റെ അപേക്ഷപ്രകാരമാണ് ട്രെയിനിന്റെ പേര് മാറ്റിയത്

ആറ് മൽസരങ്ങ്ളൂടെ ് പരമ്പരയിൽ ഇന്ത്യ മൂന്നെണ്ണം വിജയിച്ചു

ഇന്നലെ സൂറത്തിൽ നടന്ന അഞ്ചാം മൽസ്ത്രത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം

മൂന്നു സ്റ്റേഷനുകളാണ് ഈ മേഖലയിൽ ഉള്ളത് കേന്ദ്രമന്ത്രി ഹർദീപ്സിങ് പുരിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ്കെജ്രിവാളും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് നടത്തുക

പെരുമ്പുഴ കാപ്പെക്സ് ഫാക്ടറിയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വാഹനത്തിന്റൈ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു